കൊറോണ വൈറസിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് കൃതൃസമയത്ത് തന്നെ പോരാട്ടം തുടങ്ങാൻ ഇന്ത്യയ്ക്കായത് വലിയ നേട്ടമാണ് ഐക്യദീപം തെളിയിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിന്നത് പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ശശിധരൻ